കൊറിയൻ ഓപ്പ്ൺ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ ്സൈന നെഹ്പാൾ ക്വാർട്ടർ ഫൈനലിൽ കടന്നു

ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്ര അധ്യക്ഷനും ജസ്റ്റിസുമാരായ അശോക് ഭൂഷൺ എസ്

നസീർ എന്നിവർ അംഗങ്ങളുമായ ബഞ്ചാണ് വിധി പുറപ്പെടുവിച്ചത്

ആവശ്യമെങ്കിൽ ഗവണ്മെന്റിനു പള്ളികൾ ഏറ്റെടുക്കാമെന്നായിരുന്നു അന്നത്തെ വിധിയിൽ പറഞ്ഞിരുന്നത്

വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണു ക്ലൊരോ വിധിയുമെന്നു ജസ്റ്റിസ് അശോക് ഭൂഷൺ പറഞ്ഞു മൂന്നംഗ ബെഞ്ചിന്റെ വിധിയിൽ ജസ്റ്റിസ് എസ്

നസീർ വിയോജിപ്പ് രേഖപ്പെടുത്തി

വിവാഹേതര ലൈംഗിക ബന്ധം വിവാഹ മോചനത്തിനുള്ള സിവിൽ കുറ്റമായി കാണാമെന്നും എന്നാൽ ക്രിമിനൽ കുറ്റമല്ലെന്നും സുപ്രീം കോടതി അറിയിച്ചു

ഐകൃരാഷ്ട്രസഭയുടെ ഭൌമ അവാർഡ് ലഭിച്ചതിനോട് അനുബന്ധിച്ച് നൽകിയ വീഡിയോ സന്ദേശത്തിലാണ് പ്രധാനമന്ത്രി ഇക്കാര്യം വൃക്തമാക്കിയത്

പരിസ്ഥിതി സംരക്ഷണത്തെ കുറിച്ചും ലോകത്തിന് ആശങ്കയുണ്ട് പരിസ്ഥിതിയോട് നീതി പുല്ലൂർത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു

ജമ്മുകശ്മീരിലെ അനന്തനാഗ് ജില്ലയിൽ സുരക്ഷാസ്യേനയും തീവ്രവാദികളും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ ആണ് ഒരു ജവാൻ വീരമൃത്യു വരിച്ചത് ഈ സംഭവത്തിൽ ഒരു തീവ്രവാദിയും കൊല്ലപ്പെട്ടു ബുദ്ഗാം ജില്ലയിൽ പൻസാൻ മേഖലയിൽ ഉണ്ടായ മറ്റൊരു ഏറ്റുമുട്ടലിൽ രണ്ട് തീവ്രവാദികളും കൊല്ലപ്പെട്ടു പ്രദേശത്തു നിന്നും ആയുധങ്ങളും സൈന്യം കണ്ടെടുത്തിട്ടുണ്ട്

റാഞ്ചിയിൽ നടന്ന സ്വച്ഛത ഹി സേവ പ്രചരണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

രാജ്യത്ത് ജലജന്യരോഗങ്ങളുടെ വ്യാപ്തിയും കുറച്ചു കൊണ്ടു വരാനായെന്നും ഉപരാഷ്ട്രപതി പറഞ്ഞു

ന്യൂഡൽഹിയിലെ ഇന്ത്യാ ഗേറ്റിലാണ് പ്രധാന ആഘോഷ പരിപാടികൾ നടക്കുക

നാളെ രാജ്യരക്ഷാ മന്ത്രി നിർമ്മല സീതാരാമൂൻ് ഇന്ത്യാഗേറ്റിൽ പരാക്രം പർവ് ഉദ്ഘാടനം ചെയ്യും

യോഗത്തിൽ ഇന്ത്യയും ഫ്രാൻസും തമ്മിൽ ഒപ്പിട്ട കരാറിൽ യുപിഎ ഗവണ്മെന്റ് വിമാനങ്ങൾ നിശ്ചയിച്ചതിനേക്കാൾ കുറഞ്ഞ വിലയക്കാണ് എൻ

നേപ്പാൾ പ്രധാനമന്ത്രി കെ

ശർമ്മ ഒലിയുമായും ഇറാൻ വിദേശകാരൃമന്ത്രി ജെ ഷെറീഫുമായും ചിലിയൻ വിദേശകാര്യമന്ത്രി റോബർട്ടോ അംപ്യൂറോയുമായും അവർ കൂടിക്കാഴ്ച നടത്തി ബൊളീവ്യൻ വിദേശമന്ത്രി സീഗോ റോഡ്രിഗ്സുമായും ശ്രീമതി സുഷമ സ്വരാജ് നടത്തി നേപ്പാളുമായി നടത്തിയ ചർച്ച വളരെ ചർച്ച പുരോഗതിയുള്ളതും സൌഹൃർദ്രപരവുമാണെന്ന് വിദേശകാരൃമന്ത്രാലയം ന്യൂഡൽഹിയിൽ അറിയിച്ചു

ചോക്സി ബാർബുഡയിലേക്ക് കടിന്റത്

ഡി

റോഡുകൾ ജലവിതരണം വെള്ളപ്പൊക്ക നിയന്ത്രണം തീരദേശ സംരക്ഷണം ആരോഗൃമേഖല പരിസ്ഥിതി സംരക്ഷണം മുതലായ മേഖലകൾക്കു വേണ്ടിയാണ് ഈ തുക വിനിയോഗിക്കുക

ഡി ബി സംഘത്തിന്റെ റിപ്പോർട്ട് പ്രകാരം പ്രധാന മേഖലകൾക്കുണ്ടായ നഷ്ടുപ്പുകൾ കോടി രൂപയാണ് ക്രൌഡ് ഫണ്ടിങ്ങിൽ നിന്നും ദ്ദേശീയദുരന്തനിവാരണ നിധിയിൽ നിന്നും ലഭിക്കുന്ന തുക പ്രധാന്മായും പരിസ്ഥിതി ദുർബല പ്രദേശങ്ങളിൽ അധിവസിക്കുന്നവരുടെയും വീടുകൾ പൂർണ്ണമായും തകർന്നുപോയവരുടെയും പുനരധിവാസത്തിന് സ്ഥലം വാങ്ങുന്നതിനും വീടുകൾ നിർമ്മിക്കുന്നതിനും വിനിയോഗിക്കും ദേശീയദുരന്തനിവാരണ നിധിയിൽ നിന്നുള്ള തുക ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ആളുകളുടെ ഉപജീവനത്തിന് സഹായം നൽകുന്നതിനും ഉപയോഗിക്കും ദേശീയദുരന്തനിവാരണ നിധിയിൽ നിന്ന് സംസ്ഥാന നിവാരണ നിധിയിലേക്ക് ലഭിക്കുന്ന പണംവീടുകളുടെ നിർമ്മാണത്തിനും ആളുകളുടെ പുനരവധിവാസത്തിന് സ്ഥലം വാങ്ങുന്നതിനും വീടുകളുടെ അറ്റകുറ്റപ്പണിക്കും വിളകളുടെയും വളർത്തുമൃഗങ്ങളുടെയും നഷ്ടത്തിദ്ദ് സഹായം നൽകുന്നതിനും റോഡുകളും ഗവൺമെന്റ് കെട്ടിടങ്ങളും നന്നാക്കുന്നതിനും വിനിയോഗിക്കുന്നതാണ് ന്യൂസ് ഡസ്ക് ആകാശവാണി

എട്ടാമത് ഏഷ്യൻ യോഗ സ്പോർട്സ് ചാമ്പ്യൻഷിപ്പ് ജിമ്മി ജോർജ് ഇൻഡോർസ്റ്റേഡിയത്തിൽ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം യോഗ വെറും വ്യായാമമല്ല ആരോഗ്യസംരക്ഷണത്തിനൊപ്പം ശരീരത്തിന്റെയും മനസിന്റെയും സുസ്ഥിതിക്ക് യോഗ ഫലപ്രദമാണ് യോഗയുടെ പ്രാധാനൃം വർധിച്ചുവരികയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു

കേന്ദ്ര പട്ടികവർഗ മന്ത്രാലയത്തിന്റെ ബ്രാൻഡ് അംബാസിഡറാകാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്ന് മേരിക്കോട് ഡൽഹിയിൽ പറഞ്ഞു മണിപ്പൂർ സ്വദേശിനിയായ തന്റെ ഇന്ത്യയിലെ പട്ടികവർഗവിഭാഗങ്ങൾക്ക് കരുത്തൂപക്രുമെന്നും അവരുടെ ജീവിത നിലവാരത്തിന് മാറ്റം വരുത്ത്രൂൻ കഴിയുമെന്നും മേരികോം പറഞ്ഞു

ആധാറിന്റെ ഭരണഘടന സാധുതയാണ് വിധിയിലൂടെ വൃക്തമാകുന്നത്

ആധാർ ആധാറിന്റെ ലക്ഷ്യങ്ങളെയും സമൂഹത്തിലെ പാർശ്വത്കൃത സമൂഹത്തിന് കരുത്താകുമെന്നാണ് കോടതി നിരീക്ഷണമെന്നും അതോറിട്ടി സിഇഒ ഡോ അജയ് ഭൂഷൺ പാണ്ഡെ പറഞ്ഞു

യാത്ര വിനോദസഞ്ചാരം ആതിഥ്യമര്യാദ എന്നീ വിവിധ വിഭാഗങ്ങളിലാണ് അവാർഡ് നൽകിയത് വിനോദ സഞ്ചാര വികസന വിഭാഗത്തിൽ ആന്ധ്രാപ്രദേശിനാണ് ആദൃ സ്ഥാനം ലഭിച്ചത് വിനോദ സഞ്ചാരത്തെ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിച്ച സംസ്ഥാനമെന്ന നിലയിൽ കേരളത്തിന് രണ്ടാം സ്ഥാനവും ലഭിച്ചു രാജസ്ഥാൻ ഗോവ എന്നീ സംസ്ഥാനങ്ങൾ സംയുക്തമായി മൂന്നാം സ്ഥാനം പങ്കിട്ടു

വനിതാ സിംഗിൾസ് പ്രീ കാർട്ടർ ഫൈനൽ മത്സരത്തിൽ കൊറിയയുടെ കിം ജ യുന്നിനെയാണ് മുൻ ലോക ഒന്നാം നമ്പർ താരം സൈന തോൽപ്പിച്ചത്